കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുൻ ധനമന്ത്രി പി ചിദംബരത്തിന്റെ കീഴടങ്ങൽ അപേക്ഷ സി

രാജ്യത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ആയുഷ് ഹെൽത്ത് ആന്റ് വെൽനെസ്സ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് ആയുഷ് മന്ത്രി ശ്രീപാദ് യെശ്ശോ നായിക്

താമസം ഒഴിയില്ലെന്ന് കാണിച്ച് കൊച്ചി മരടിലെ ഫ്ളാറ്റ് ഉടമകൾ നഗരസഭയ്ക്ക് മറുപടി നൽകി

കൂടുതൽ വിവരങ്ങളുമായി ഷീജ ഗണേഷ് വോയിസ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന സമ്മേളനം പങ്കെടുത്തവരുടെ എണ്ണം കൊണ്ട് ശ്രദ്ധേയമായിത്തീർന്നതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു ആഗോളതലത്തിൽ ഭൂമി ഉപയോഗശൂന്യമാകുന്നത് തടയുന്നതിനുള്ള ഡൽഹി പ്രഖ്യാപനം സമ്മേളനത്തിൽ സ്വീകരിക്കുമെന്നും മന്തി പറഞ്ഞു സമ്മേളനം വിജയകരമായതിൽ ശ്രീ ജാവദേക്കർ സന്തോഷം പ്രകടിപ്പിച്ചു കാലാവസ്ഥാ വ്യതിയാനം ജൈവവൈവിധ്യം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ മെച്ചപ്പെട്ട പ്രവർത്തനും നടത്തി വരുന്നതായും അദ്ദേഹം പറഞ്ഞു ഉപയോഗശൂന്യമായി ഭൂമി വീണ്ടെടുക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു

പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന സിഖ് വിദേശ പൌരന്മാർക്ക് ഇന്ത്യ സന്ദർശിക്കാനും കുടുംബാംഗങ്ങളെ കാണുന്നതിനും ഇതിലൂടെ അവസരമൊരുങ്ങും

ഇവരിൽ ചിലർ നിയമനടപടികളിൽ നിന്ന് രക്ഷപ്പെടാനായി ഇന്ത്യയിൽ നിന്ന് പലായനം ചെയ്യുകയും വിദേശ ്പൌരത്വം നേടുകയും പ്രതികൂല പട്ടികയിൽ ഉൾപ്പെടുത്തിയതോടെ ഇവർക്ക് ഇന്ത്യൻ വിസ ലഭിക്കാൻ യോഗ്യതയില്ലാതായി തീർന്നിരുന്നു

ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം ടിറ്റർ സന്ദേശത്തിൽ അറിയിച്ചു ഭോപ്പാലിലെ ലോവർ തടാകത്തിൽ ഗണേശ വിഗ്രഹ നിമജ്ജനത്തിനെത്തിയ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്

ചിനാർ കോർപ്പ്സ് കമ്മാൻഡർ ലഫ്റ്റ്ന്റ് ജനറൽ കെ

വടക്കൻ കശ്മീരിലെ നിയന്ത്രണരേഖയിലും ഉൾപ്രദേശങ്ങളിലുമുള്ള സേനാ വിന്യാസവും ഇവർ വിലയിരുത്തി നിയന്ത്രണരേഖയിൽ കമ്മാൻഡർമാരും സേനയും പുലർത്തുന്ന ജാഗ്രതയെയും കശ്മീരിലെ ജനങ്ങൾക്ക് നൽകുന്ന സഹായത്തെയും ആർമി കമ്മാൻഡർ അഭിനന്ദിച്ചു

ജസ്റ്റീസുമാരായ അരുൺ മിശ്രയും യു

ദളിതർക്കെതിരായ അതിക്രമങ്ങൾ തടയുന്ന നിയമ വ്യവസ്ഥകൾ ലഘൂകരിച്ച സുപ്രിം കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി

സി എസ്

ഒറ്റ സംഖ്യയിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ ഒരു ദിവസവും ഇരട്ട സംഖ്യയിൽ അവസാനിക്കുന്ന വാഹനങ്ങൾ അടുത്ത ദിവസവും മാറി മാറി നിരത്തിലിറങ്ങുന്ന സംവിധാനമാണിത്

അന്തരീക്ഷ മലിനീകരണത്തിന്റെ തോത് കൂറ്റയ്ക്കുന്നതിനായി കേന്ദ്രം നടപടികൾ എടുത്തിട്ടുള്ളതായും ശ്രീ ഗ്ന്ധ്കരി വ്യക്തമാക്കി

ചിദംബരം നൽകിയ അപേക്ഷ പ്രത്യേക സി ബി ഐ

എക്സ് മീഡിയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ ചിദംബരം ഇപ്പോൾ തിഹാർ ജയിലിലാണ്

ബി ഐ കേസിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ആയതിനാൽ ചിദംബരത്തിന് തെളിവുകൾ നശിപ്പിക്കാൻ കഴിയില്ലെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് കോടതിയെ അറിയിച്ചു

സംസ്ഥാനങ്ങളുടെ എതിർപ്പുകൾ നീക്കാനുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രിമാരുമായുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കൈക്കൊള്ളുമെന്ന് ഗഡ്കരി അറിയിച്ചു

സംസ്ഥാനത്തിന് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി പനാജിയിൽ സ്വദേശ് ദർശൻ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് ഗവൺമെന്റ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ചൊവ്വാഴ്ച ദക്ഷിണ സുഡാനിലെ ജുമ്പയിൽ നടന്ന മെഡൽ പരേഡിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു സംഘർഷം നിലനിൽക്കുന്ന ദക്ഷിണ സുഡാനിൽ പൌരന്മാരുടെ സംരക്ഷണത്തിനായി സേവനം കാഴ്ച വെച്ചതിനാണ് പുരസ്കാരങ്ങൾ നൽകിയത്

നാഗ്പൂരിൽ സി എൻ ജി എൽ എൻ ജി സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം വിദർഭയിൽ അഞ്ച് ബയോ സി എൻ ജി പ്താന്റുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

ട്രെയിനുകളിലും സ്റ്റേഷൻ പരിസരങ്ങളിലും ശുചിത്വം ഉറപ്പു വരുത്തുന്നതിന് സമഗ്രമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും റെയിൻവേ മന്ത്രി സുരേഷ് അങ്കാടി വ്യക്തമാക്കി

നികുതിദായകർ ആദായ നികുതി അധികൃതർക്കു മുന്നിൽ നേരിട്ട് ഹാജരാകേണ്ട ആവശ്യമില്ല വീഡിയോ ലിങ്കുകളിലൂടെ വൃക്തിഗത ഹിയറിങ് നടത്താനുള്ള സംവിധാനം ഇതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്

കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗമായ നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ സെക്രട്ടറി സ്ഥാനത്തും വിജയിച്ചു

കാവൽ ദേവതകൾക്ക് ആരാധന അർപ്പിക്കുന്ന പാൻ ലാബ്സോൾ ഇന്ദ്രദേവന് ആരാധന അർപ്പിക്കുന്ന ഇന്ദ്രജാത്രി എന്നിവ സംസ്ഥാനത്തെ പ്രധാന ഉത്സവങ്ങളാണ് ജന്റങ്ങളിൽ സമത്വവും സാഹോദര്യവും ഊട്ടി ഉറപ്പിക്കുന്ന ഉത്സവവേള്യിൽ ഗവർണർ ഗംഗാ പ്രസാദ് മുഖ്യമന്ത്രി പി

തമാംഗ് എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു

സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃകവും വിളിച്ചോതുന്നതായിരിക്കും മ്യൂസിയം